നരേന്ദ്രമോദി ഞായറാഴ്ച ജനതാ കർഫ്യു നടപ്പാക്കണമെന്നും രാഷ്ട്രത്തോട് പ്രധാനമന്ത്രി

ലോകത്ത് കൊറോണ ബാധിച്ച് മരിച്ചവരുടെ എണ്ണം പതിനായിരം കടന്നു നിർഭയ കേസിൽ നാലു പ്രതികളുടേയും വധശിക്ഷ നടപ്പാക്കി മധ്യപ്രദേശിൽ വൈകീട്ട് അഞ്ചിന് മുമ്പ് ഭൂരിപക്ഷം തെളിയിക്കണമെന്ന് സുപ്രീംകോടതി വാർത്തകൾ വിശദമായി കൊറോണ വൈറസ് ബാധ രാജ്യം കരുതലോടെ നേരിടണമെന്നും കൊറോണയിൽ നിന്ന് രക്ഷ നേടാൻ മരുന്നോ വാക്സിനോ കണ്ടെത്തിയിട്ടില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു കൊറോണ വൈറസ് ബാധയുടെ പശ്ചാത്തലത്തിൽ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി ഞായറാഴ്ച ജനതാ കർഫ്യൂ നടപ്പാക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ജനത്തിനുവേണ്ടി ജനം സ്വയം നടത്തുന്ന ജനതാ കർഫ്യൂവിൽ രാവിലെ ഏഴ് മുതൽ രാത്രി ഒൻപത് വരെ ആരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത് കൊറോണ പ്രതിരോധ ബോധവത്ക്കരണ പൊതുസേവന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നന്ദി പറയാൻ ഞായറാഴ്ച വൈകിട്ട് അഞ്ച് മണിമുതൽ അഞ്ച് മിനുട്ട് ജനങ്ങൾ നീക്കിവെക്കണം വീടിന്റെ പൂമുഖത്തുനിന്ന് സ്വന്തം നിലയ്ക്ക് അഭിവാദ്യമർപ്പിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ പുറത്തിറങ്ങരുത് വീട്ടിൽ നിന്ന് ഔദ്യോഗിക ജോലികൾ നിർവഹിക്കാൻ ശ്രദ്ധിക്കണം

കൊറോണയെ പ്രതിരോധിക്കാൻ ജനം കരുതലോടെയിരിക്കണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു കൊറോണ മഹാമാരി പരക്കാതെ നോക്കുന്നതിൽ ഇന്ത്യയും ശ്രദ്ധാലുവാണ് പരിഭ്രാന്തരായി സാധനങ്ങൾ വാങ്ങിക്കൂട്ടരുതെന്നും അവശ്യ സാധനങ്ങളുടെ ലഭ്യത ഗവൺമെന്റ് ഉറപ്പുവരുത്തുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു ഇന്ത്യയെപ്പോലെ വൻജനസംഖ്യയുള്ള വികസ്വര രാജ്യത്ത് കൊറോണയെ നേരിടുക എളുപ്പമുള്ള കാര്യമല്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

ദുബായിൽ നിന്നെത്തി കാസർകോട് ജില്ലയിൽ നിരീക്ഷണത്തിലായിരുന്ന വ്യക്തിക്കാണ് രോഗം കണ്ടെത്തിയത്

ദർദ കാസർകോട് ജനറൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഇന്നലെ രോഗം സ്ഥിരീകരിച്ച ആളുടെ ആരോഗ്യനില പൂർണ്ണ തൃപ്തികരമാണെന്ന് ജില്ലാമെഡിക്കൽ ഓഫീസർ അറിയിച്ചു

ദേദ ഏപ്രിലിൽ നൽകേണ്ട സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഈ മാസം തന്നെ നൽകും

സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കാത്ത ബി

എൽ എ

എൽ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരു മാസത്തെ ഭക്ഷ്യധാന്യം നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു

എൽ അന്ത്യോദയ വിഭാഗത്തിൽ പെടാത്തവർക്ക് പത്ത് കിലോ എന്ന നിലയിലാവും ഈ ഘട്ടത്തിൽ നൽകുക

വിവിധ മേഖലയിൽ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നൽകേണ്ട കുടിശ്ശിക അടുത്തമാസം കൊടുത്ത് തീർക്കും ഓട്ടോ ടാക്സി തുടങ്ങിയവയുടെ ഫിറ്റനസ് ചാർജ്ജിൽ ഇളവ് നൽകും ബസുകളിൽ സ്റ്റേജ് കാരിയറുകൾക്കും കോൺട്രാക്ട് കാരിയറുകൾക്കും അടുത്ത മൂന്ന് മാസം നൽകേണ്ട ടാക്സിൽ ഒരു ഭാഗം ഇളവു നൽകും വൈദ്യുതി വാട്ടർ ബില്ലുകൾ പിഴ കൂടാതെ അടയ്ക്കാൻ ഒരു മാസത്തെ സാവകാശം നൽകുമെന്നും സിനിമാ തിയറ്ററുകൾക്ക് വിനോദ നികുതിയിൽ ഇളവ് നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു

സ്ഥിതി മോശമാവുകയാണെങ്കിൽ എടുക്കേണ്ട നടപടി സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ സേനാവിഭാഗങ്ങളുടെയും അർദ്ധസൈനിക വിഭാഗങ്ങളുടെയും സംസ്ഥാനത്തെ മേധാവികളുമായി തിരുവനന്തപുരത്ത് നടത്തിയ ചർച്ചയിലാണ് തീരുമാനം ദർ രാജ്യത്ത് കൊറോണാ വൈറസിന്റെ സമൂഹ വ്യാപനത്തിന് തെളിവില്ലെന്ന് കേന്ദ്രം അറിയിച്ചു

ദര ലോകത്ത് കൊറോണാ വൈറസ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം പതിനായിരം കടന്നും

ഇതിന്റെ ഭാഗമായി മൂവായിരത്തോളം ക്യാമ്പുകളിലെ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ടെന്ന് ലേബർ കമ്മീഷണർ പ്രണബ് ജ്യോതിനാഥ് മന്ത്രി ടി

ഐ ഡിസ്പൻസറികളിലും കാലത്ത് എട്ടുമുതൽ വൈകീട്ട് ആറുവരെ ഒ

പി പ്രവർത്തനം ദീർഘിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആവശ്യമായ കൂടുതൽ ഡോക്ടർമാരെ ഉടൻ നിയോഗിക്കാനും മറ്റു ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താനും ഇഎസ് ഐ ഡയറക്ടർക്ക് മന്ത്രി നിർദേശം നൽകി

മുരളീധരനുമായി ഫോണിൽ സംസാരിച്ച മന്ത്രി ജെ മേഴ്സിക്കുട്ടിഅമ്മ ആവശ്യപ്പെട്ടു ദർ കൊറോണ പശ്ചാത്തലത്തിൽ സഹകരണ ബാങ്കുകളിൽ നിന്ന് വായ്പ എടുത്തവർക്ക് തിരിച്ചടവിന് സംസ്ഥാന ഗവൺമെന്റ് മൊറട്ടോറിയം പ്രഖ്യാപിച്ചു

കെ രാഘവൻ എം

ഇതുസംബന്ധിച്ച് എം

കെ രാഘവൻ ആന്റോ ആന്റണി എന്നിവരുമായി ന്യൂഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് മന്ത്രി ഇക്കാര്യം ഉറപ്പുനൽകിയത്

ദേദ മലപ്പുറത്ത് കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ച് മഞ്ചേരി മെഡിക്കൽ കോളജ് ആശുപത്രിയിൽ കഴിയുന്ന രണ്ട് പേരുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡി എം ഒ അറിയിച്ചു

ഇതിനായി അതിർത്തി ചെക്പോസ്റ്റുകളായ ബാവലിയിലും തോൽപ്പെട്ടിയിലും നിരീക്ഷണ ചുമതല തഹസിൽമാർക്ക് നൽകി രുമെ കോവിഡ് സംബന്ധിച്ച് കേന്ദ്ര സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ നിർദേശങ്ങൾ മാത്രം പാലിക്കാൻ ശ്രമിക്കണമെന്ന് മന്ത്രി വി

ദർദ വർക്കലയിൽ കൊറോണ രോഗബാധ സ്ഥിരീകരിച്ചിരുന്ന ഇറ്റാലിയൻ പൌരന്റെ തുടർ പരിശോധനാഫലം നെഗറ്റീവ്

വധശിക്ഷ നടപ്പാക്കുന്നതിനെതിരെ ഇന്നലെ രാത്രി നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയതിനെ തുടർന്ന് പ്രതികൾ സുപ്രീംകോടതിയെ സമീപിച്ചു

ദേദ മധ്യപ്രദേശ് നിയമസഭയിൽ ഇന്ന് വൈകിട്ട് അഞ്ചിന് മുമ്പ് ഭൂരിപക്ഷം തെളിയിക്കാൻ സുപ്രീംകോടതി നിർദ്ദേശിച്ചു വിമത കോൺഗ്രസ് എം എൽ എ മാർക്ക് നിയമസഭയിൽ എത്തുന്നതിന് ആവശ്യമായ സുരക്ഷ ഏർപ്പെടുത്തണമെന്ന് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് മധ്യപ്രദേശ് കർണ്ണാടക സംസ്ഥാനങ്ങളിലെ പൊലീസ് മേധാവികൾക്ക് നിർദ്ദേശം നല്കി